കേരളത്തിൽ കാലവർഷം ശക്തം കടൽക്ഷോഭം രൂക്ഷം

ടീമിനെ പ്രഖ്യാപിച്ചു വിരാട് കോഹ്ലി നായകൻ

ശ്രീഹരിക്കോട്ട യിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ജി എസ് എൽ വി

മീ

കൂടുതൽ വിവരങ്ങളുമായി ര്ഞ്ജിത് വോയിസ് സംസ്ക്കാര ചടങ്ങിൽ കനത്ത മഴയേയും കാറ്റിനേയും അവഗണിച്ച് നിരവധി പേർ പങ്കെടുത്തു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തുടങ്ങിയവരും സന്നിഹിത രായിരുന്നു

എ അധ്യക്ഷ സോണിയഗാന്ധി പ്രിയങ്കാ ഗാന്ധി മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി നേരത്തെ മുതിർന്ന ബി

നേതാവ് എൽ

ഡൽഹി മുഖ്യമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും കേരള ഗവർണറായും സേവന മനുഷ്ഠിച്ചിട്ടുള്ള ഷീല ദീഷിത് നിലവിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു

മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗും മുഖ്യമന്ത്രിമാരായ അശോക് ഗഹലോട്ടും കമൽനാഥും അന്തിമോപചാരം അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അവരുടെ വസതിയിലെത്തി അനുശോചനം അറിയിച്ചിരുന്നു

ഇന്ന് ഉച്ചയ്ക്ക് ന്യൂഡൽഹിയിലെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ബിഹാറിലെ സമസ്തിപൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം

യാണ് രാമചന്ദ്ര പസ്വാൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ സഹോദരനാണ്

ജെ

രാജ്യ തലസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഗാർഗ് നടത്തിയ സേവനങ്ങൾ പ്രശംസ നീയമാണെന്ന് അദ്ദേഹം ടിറ്ററിൽ അനുസ്മില്ലിച്ചു

ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ ്മറ്റ് നേതാക്കൾ തുടങ്ങിയവരും ഗാംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

രണ്ടായിരം രൂപ വീതമുള്ളൂർരണ്ട് ഗഡുക്കളാണ് കർഷകർക്ക് നൽകിയത്

എം കിസാൻ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ജെ പിയുടെ ലക്ഷ്യമെന്ന് ബി ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

കോൺഗ്രസ് മുക്ത ഭാരത്തിലൂടെ ബി ജെ

യുക്ത ഭാരതമാണ് പാർട്ടി ലക്ഷ്യം വെയ്ക്കുന്നത്

രാജ്യത്തെ ജനങ്ങൾക്ക് സേവനം നൽകുകയാണ് ബി ജെ

യുക്ത ഭാരതത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ മഹാരാഷ്ട്ര ഏക്സിക്യുട്ടിവീൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

പാർട്ടി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാത പിന്തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു

ജി

ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഗ്ലോബൽ ഹെൽത്ത് കെയർ ഉച്ചകോടിയെ ഹൈദരാബാദിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്താകമാനം പ്രാഥമിക ആരോഗ്യ സേവനം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റുമായി സഹകരിച്ചു പ്രവർത്തിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ വൈദ്യശാസ്ത്ര മേഖലകളുടെ ഗുണ ഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുംവിധം ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു പകർച്ച വ്യാധി ഇതർ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യ ത്തിൽ ജനങ്ങളിൽ ഇതു സംബന്ധിച്ച് അവബോധം വളർത്തേണ്ടതു ണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്രാപിച്ചതാണ് ശക്തമായ മഴയ്ക്ക് കാരണം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധൃതയെന്ന് മുന്നറിയിപ്പുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലും ഉള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദേശം പാലിക്കണമെന്നും അറിയിച്ചു

കടൽ പ്രക്ഷുബ്ദമാകാൻ സാധ്യിതുയുള്ളിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

കടൽ പ്രക്ഷ്ബ്ധമായതിനെ തുടർന്ന് തിരുവനന്തപുരം ശംഖുംമുഖം ബീച്ചിൽ ഒരാഴ്ചത്തേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി

സിന്ധുവിനെ നേരിട്ടുള്ള രണ്ട് സെറ്റുകൾക്കാണ് തോൽപ്പിച്ചത്

അശ്ചിൻ ഇഷാന്ത് ശർമ്മ മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ എന്നിവർ ടെസ്റ്റ് ടീമിലെത്തി

ചാവേർ ആക്രമണ ത്തിൽ നാല് പൊലീസുകാർ ഉൾപ്പെട്ട് ഏഴ് പേർ കൊല്ലപ്പെട്ടു

തെരീഖ് ഇ താലിബാൻ പ്ലാകിസ്ഥാൻ എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തിര് ഏറ്റെടുത്തിട്ടുണ്ട്

പ്രക്ഷോഭം അക്രമാസക്തമാകാനുള്ള സാധ്യത മുൻനിർത്തി നഗരത്തിൽ അയ്യായിര ത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മോശമായ ഉഭയകക്ഷി ബന്ധമാണ് കപ്പൽ സൌദിയിൽ നിന്നു മടങ്ങുന്നത് വൈകാൻ കാരണമായത്

പ്രിയാ സാഹയ്ക്കെതിരെ ഗവൺമെന്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ന്യൂനപക്ഷങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ ആവശ്യമുന്നയിച്ചിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംഘടന ഹിന്ദു ബൌദ്ധ് ക്രിസ്ത്യൻ ഐക്യപരിഷത്തിന്റെ സംഘടനാ യായ സെക്രട്ടറിമാരിലൊരാളാണ് ശ്രീമതി